അഭിയാന് ഇന്ന് തുടക്കം

വന്നിട്ട് ഇന്ന് രണ്ട് പ്ലൂർഷം പൂർത്തിയായി പരിഷ്ക്കരിച്ച ജി

ഇടുക്കി കസ്റ്റഡി മരണം നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്

വ്യോമ മാർഗമാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബഞ്ചാണ് ഹർജി തള്ളിയത്

പാക് അധീന മേഖലകളിലെ ഭൂമി ഇന്ത്യ പിടിച്ചെടുക്കണമെന്നും ഈ പ്രദേശങ്ങളെ പാർലമെന്ററി നിയമസഭ സീറ്റുകളായി തിരിക്കണമെന്നുമാണ് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത്

ഡിജിറ്റൽ ഇന്ത്യ രാജ്യത്ത് ആരംഭിച്ചിട്ട് നാല് വർഷമായതോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ടിറ്ററിലാണ് ഇക്കാര്യം അറിയിച്ചത് ഡിജിറ്റൽ ഇന്ത്യയിലൂടെ സാങ്കേതികവിദ്യയുടെ ലഭ്യത എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കാൻ കഴിഞ്ഞു ജനങ്ങളുടെ മുന്നേറ്റമാണ് ഡിജിറ്റൽ ഇന്തൃ ജനങ്ങളുടെ കരുത്തും പ്രയത്നവും ഡിജിറ്റൽ ഇന്ത്യയെ കൂടുതൽ ജനകീയമാക്കിയതായും പ്രധാനമന്ത്രി പറഞ്ഞു ഡിജിറ്റൽ ഇന്ത്യുടെ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാപേർക്കും പ്രധാനമന്ത്രി അഭിവാദ്യങ്ങൾ അർപ്പിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ മൻ കി ബാത്തിൽ ജലസംരക്ഷണത്തിന്റെയും സംഭരണത്തിന്റെയും ആവശ്യകത എടുത്തു പറഞ്ഞിരുന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്നലെ പറ്റ്നയിൽ നടന്ന ഉന്നതതല യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ജില്ലകളിൽ ആവശ്യമായ ഒ

പാക്കറ്റുകളും ഗ്ലുക്കോസും എത്തിക്കാൻ കേന്ദ്രമന്ത്രി പ്രത്യേകം നിർദ്ദേശം നൽകി മസ്തിഷ്കജ്വരം ബാധിച്ചു ഭൂരിഭാഗം കുട്ടികളിലും പോഷക കുറവും ഹൈപ്പർ ഗ്ലൈസീമിയും കണ്ടെത്തിയതായി ഡോക്ടർമാർ അറിയിച്ചു

ഒരു മാസം നീളുന്ന ബോധവൽകരണ പരിപാടി യു

അന്താരാഷ്ട്ര വിപണിയിൽ നിരക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് ഇത് പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബലൃത്തിൽ വരുമെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

രാജ്യവ്യാപകമായി വിവിധ പരിപാടികളാണ് ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്

ഒക്ടോബർ ഒന്ന് മുതൽ ഈ രീതി നിർബന്ധിതമാക്കാനാണ് ധനമന്ത്രാലയത്തിന്റെ പദ്ധതി ചരക്ക് സേവന നികുതി സംവിധാനത്തിന്റെ രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായി ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി അനുരാഗ് താക്കൂർ അധ്യക്ഷത വഹിക്കും

ടി സംബന്ധിച്ച് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകർക്കായുള്ള പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടക്കും

എസ് ടി സംവിധാനം ന്ടപ്പാക്കാൻ പ്രയത്നിച്ച ഉദ്യോഗസ്ഥരെ ചടങ്ങിൽ ആദരിക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

പണമിടപാടുകൾക്ക് ചാർജ്ജുകൾ ഈടാക്കില്ലെന്ന റിസർവ്വ് ബാങ്കിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് നടപടി

ഇക്കാര്യത്തിൽ പ്രഅ്ടിയന്തരപ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷ്ഠേധിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ട്

പാളത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മുംബൈയ്ക്കും പുനെയ്ക്കുമിടയിലുള്ള ചരക്ക് ട്രെയിൻ റദ്ദാക്കി നിരവധി ട്രെയിനുകൾ വഴിതിരിച്ച് വിട്ടു

ഇതോടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ എണ്ണം എട്ടായി